ഉദുമ എം

കുഞ്ഞിരാമൻ കാസർകോട് ആലക്കോട് വാർഡിലെ പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയതായ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രമേയത്തിന് അനുമതി തേടിയത് എന്നാൽ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലുള്ള കാര്യമാണെന്നും സഭയിൽ ഉന്നയിക്കുന്നത് യുക്തമല്ലെന്നും കാട്ടി സ്പീക്കർ പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു

ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ച് റിവിഷനും മോഡൽ പരീക്ഷകളുമടക്കം നടത്തും